മൂന്ന് കമ്പനികളാണ് രാജ്യത്ത് വാക്സിൻ വികസിപ്പിക്കുന്നതെന്നും ഇതിലൊരു കമ്പനിയുടെ ക്ലിനിക്കൽ പരീക്ഷണത്തിന്റെ മൂന്നാംഘട്ടം ഏറെ മുന്നേറിയെന്നും അദ്ദേഹം ദൂരദർശൻ ന്യൂസിനോട് പറഞ്ഞു മറ്റ് രണ്ട് കമ്പനികൾ രണ്ടാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണത്തിലാണെന്നും അതിലൊരു കമ്പനി ഈയിടെ മൂന്നാംഘട്ടത്തിലേക്ക് കടന്നുവെന്നും ഡോക്ടർ ഹർഷവർദ്ധൻ അറിയിച്ചു

ഉത്സവകാലത്ത് കോവിഡ് വ്യാപനം തടയാൻ മുൻ കരുതലുകൾ കർശനമായി പാലിക്കണമെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ദേദ സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് രോഗികളുടെ എണ്ണം എണ്ണായിരം കവിഞ്ഞു അതേസമയം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറഞ്ഞു

കഴിഞ്ഞ ദിവസം ഇത് പതിമൂന്ന് ശതമാനത്തിന് മുകളിലായിരുന്നു

ദേദ ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കൂവെന്ന് മന്ത്രി എ

കോഴിക്കോട് ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ബോധവത്കരണം ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ദേദ കോവിഡ് വ്യാപിച്ചതിനെ തുടർന്നുണ്ടായ ലോക്ഡൌണും നിയന്ത്രണങ്ങളും കാരണം ദുരിതത്തിലായ തെരുവിൽ കഴിയുന്നവർക്ക് വേണ്ടി കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച ഉദയം പുനരധിവാസ പദ്ധതിക്ക് ഗവൺമെന്റ് അംഗീകാരത്തിനായി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ

കോഴിക്കോട് ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ചികിത്സാ സൌകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് ഓൺലൈനായി നടത്തിയ അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്

ദേദ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻകി ബാത് ഇന്ന്

ദൂരദർശനും മൻകി ബാത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്

ആർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ ന്യൂസ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യുട്യൂബ് ചാനലുകളിലും മൻകി ബാത് ലഭ്യമാകും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ മലയാള പരിഭാഷ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ കേൾക്കാം

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ജനങ്ങൾക്ക് ദസറ ആശംസകൾ നേർന്നു ഭാരതത്തിന്റെ സാംസ്കാരിക ഏകത്വം ശക്തിപ്പെടുത്തുന്ന ഈ ആഘോഷം നന്മയുടെ മാർഗത്തിൽ സൌഹാർദ്ദത്തിൽ കഴിയാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു

വെങ്കയ്യനായിഡു പറഞ്ഞു

കേരളത്തിൽ നാളെയാണ് വിജയദശമി ദ്ദേ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇക്കുറി വിദ്യാരംഭ ചടങ്ങുകൾ വേണ്ടെന്നുവെച്ചു ചരിത്രത്തിലാദ്യമായാണ് തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭം ഇല്ലാതിരിക്കുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവവും വേണ്ടെന്നുവെച്ചു

കൂത്തമ്പലത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ വിവിധ കലാവകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു

മന്ത്രി എ

എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും കിംഗ്സ് ഇലവൻ പഞ്ചാബിനും ജയം

ഒരു ഘട്ടത്തിൽ അനായാസ വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്ന ഹൈദരാബാദിന്റെ വിക്കറ്റുകൾ തുടർച്ചയായി വീഴ്ത്തിയാണ് പഞ്ചാബ് വിജയം സ്വന്തമാക്കിയത്

ദേദ കൈത്തറി മേഖലയിലെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്ന് മന്ത്രി ഇ

കൈത്തറിയുടെ ഭാവി മുന്നിൽകണ്ട പദ്ധതികളാണ് ഗവൺമെന്റ് നടപ്പാക്കി കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ശാസ്ത്രീയ സംരക്ഷണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയ കണ്ണൂരിലെ ഹാൻവീവ് കെട്ടിടത്തിന്റെ സമർപ്പണവും കൈത്തറി മ്യൂസിയം സജ്ജീകരണത്തിന്റെ ഉദ്ഘാടനവും നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ എങ്ങനെ കൈത്തറിയുടെ നാടായി എന്ന ചരിത്രം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ദേദ കുട്ടനാട്ടിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് മന്ത്രിതല ചർച്ച നടക്കും നെല്ല് സംഭരിക്കാൻ തയ്യാറായ സഹകരണസംഘം ഭാരവാഹികളുമായി മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ പി തിലോത്തമൻ വി

ദര കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി പൊസഡിഗുംബയെ വികസിപ്പിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു ബേക്കൽ കോട്ടയോടൊപ്പം ബീച്ച് ടൂറിസവും റാണിപുരം മഞ്ഞംപൊതിക്കുന്ന് കോട്ടഞ്ചേരി തുടങ്ങിയ ഹിൽ സ്റ്റേഷൻ ടൂറിസവും വികസിപ്പിച്ച് ടൂറിസം മേഖലയിൽ പുതിയ കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മന്ത്രി കാസർഗോഡ് അഭിപ്രായപ്പെട്ടു

ദേദ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ട്രെയിനിനു മുന്നിൽ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ച മൂന്ന് കുട്ടികൾക്ക് ട്രെയിൻ തട്ടി പരിക്കേറ്റു

ഇടക്കുളങ്ങരക്കും മാളിയേക്കലിനുമിടയിൽ ഇന്നലെ വൈകീട്ട് ചെന്നെ മെയിലിന് മുന്നിലാണ് കുട്ടികൾ സെൽഫി എടുക്കാൻ ശ്രമിച്ചത്